എൽ മാർ സ്പീക്കർക്ക് രാജിക്കത്ത് നൽകി

നിക്ഷേപം നടത്തുമെന്ന് കേന്ദ്രമൃത്തി പ്പീയുഷ് ഗോയൽ

വിക്കറ്റ് ജയം

എ മാർ രാജിവെച്ചതിനെ തുടർന്നാണ് രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായത് കോൺഗ്രസിലെ ഒൻപത് എം

എമാരും ജെ ഡി എസിലെ മൂന്നു എം

നേരത്തെ ഇവർ സ്പീക്കറെ സന്ദർശിച്ച് രാജിക്കത്ത് നൽകിയിരുന്നു കോൺഗ്രസിലെയും ജെ ഡി

എ മാർ രാജിവെച്ചതായി ജെ ഡി എസിലെ വിമത എം

എൽ എമാരാണ് രാജി സമർപ്പിച്ചതെന്ന് അസംബ്ലി സെക്രട്ടറിയേറ്റ് വൃത്തങ്ങൾ അറിയിച്ചു

എൽ എ മാരുടെ രാജി അംഗീകരിച്ചാൽ സഖ്യ ഗവൺമെന്റിന് സഭയിൽ ഭൂരിപക്ഷം നഷ്ടമാകും അമേരിക്കയിലുള്ള മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി ഇന്ന് തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്

സ്പീക്കർ എടുക്കുന്ന തീരുമാനത്തിനുശേഷം അടുത്ത നടപടികളില്ലേക്ക് കടക്കുമെന്ന് കർണാടക ബി

പി അധ്യക്ഷൻ ബി

കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

യാത്രക്കാരുടെ എണ്ണം അധികരിച്ചതിലൂടെ ട്രെയിനുകളുടെ എണ്ണത്തിൽ കാതലായ വർദ്ധനയാണ് അനിവാര്യമായിരിക്കുന്നത്

ജെ പി അംഗത്വ വിതരണ ക്യാമ്പയിനോടനുബന്ധിച്ച് പനാജിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഈ പാതയിൽ ദ്രുതഗതിയിലാണ് വൈദ്യുതീകരണം പൂർത്തിയായതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു റെയിൽവേയിലെ കണക്റ്റിവിറ്റി വർദ്ധിക്കുന്നതോടെ ഗോവയിലെ ടൂറിസം മേഖലയ്ക്ക് വൻ നേട്ടമുണ്ടാകുമെന്നും പീയുഷ് ഗോയൽ ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഈ കേന്ദ്രങ്ങളിൽ ശൌചാലയം മാലിന്യ സംസ്കരണം കുടിവെള്ളം വെയിറ്റിംഗ് ഷെഡ് എന്നിവ ഉൾപ്പെടെയുള്ളവ നിർമ്മിക്കും വിനോദ സഞ്ചാര മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് അസം വിനോദ സഞ്ചാര വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ഭാസ്കർ ഫുകാൻ പറഞ്ഞു

ത്ലൂസ്മാനമായ ഇറ്റാനഗറിലായിരിക്കും കേന്ദ്രങ്ങൾ ആരംഭിക്കുക കായിക രംഗഞ്ഞ അടിസ്ഥാന സൌകര്യ വികസനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവണ്മെന്റുമായി നടത്തിയ ആശയ വിനിമയത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആയോധന കലകൾ ഭാരോദ്യഹനം ബോക്സിംഗ് എന്നീ കായിക ഇനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവയായിരിക്കും കേന്ദ്രങ്ങൾ

നോർത്ത് ഈസ്റ്റ് യൂത്ത് ഫെസ്റ്റിവലിന് ഈ വർഷം അരുണാചൽപ്രദേശ് ആതിഥേയരാകുമെന്നും ശ്രീ റിജിജു പറഞ്ഞു

ദക്ഷിണ തെലങ്കാനയിലെ സംഷാബാദിൽ ആദിവാസി വനിതയായ സോണി നായിക്കിന് അംഗത്വം നൽകിയായിരുന്നു ഉദ്ഘാടനം

ലക്ഷ്മണും ദേശീയ ജനറൽ സെക്രട്ടറി മുരളീധര റാവുവും യോഗത്തിൽ പങ്കെടുത്തു

പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് സമൂഹത്തെ ശാക്തീകരിക്കുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു മറ്റ് വിവിധ വികസന പദ്ധതികൾക്കും ശ്രീമതി സ്മൃതി ഇറാനി തുടക്കം കുറിച്ചു

സിസി ലോകകപ്പ് ക്രിക്കറ്റിൽ ചൊവ്വാഴ്ച നടക്കുന്ന ആദ്യ സെമിയിൽ ഇന്ത്യ ന്യൂസിലന്റിനെ നേരിടും ഇന്നലെ നടന്ന മ്ത്ര്സരത്തിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയതോടെ ഇന്ത്യ പോയിന്റ് പ്ലിട്ടിക്ടിയിൽ ഒന്നാം സ്ഥാനത്ത് എത്തി വിശദാംശങ്ങളുമായി പ്രിയ

രോഹിത് ശർമ്മയും കെ

പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തിയ ഇന്ത്യ ചൊവ്വാഴ്ച നടക്കുന്ന ആദ്യ സെമിഫൈനലിൽ ന്യൂസിലന്റിനെ നേരിടും പോയിന്റ് പട്ടികയിലെ രണ്ടാം സ്ഥാനക്കാരായ ഓസ്ട്രേലിയ വ്യാഴാഴ്ച സെമിയിൽ ഇംഗ്ലണ്ടിനെ നേരിടും

ഗവർണർ സത്യപാൽ മാലിക് ചെയർമാനായ സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് കൌൺസിലാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം കൈക്കൊണ്ടതെന്ന് ഒദ്യോഗിക വക്താവ് അറിയിച്ചു ആധാറുമായി ബന്ധപ്പെടുത്തുന്നതിലൂടെ വാർധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ശാരീരിക വൈകല്യമുള്ളവർക്കുള്ള പെൻഷൻ എന്നിവയുടെ വിതരണത്തിലെ കാലതാമസവും സുതാര്യതയും ഉറപ്പ് വരുത്തുവാനാണ് ഈ നീക്കം അതാത് ജില്ലകളിലെ തീർപ്പു കൽപ്പിക്കാത്ത എല്ലാ പെൻഷ്ടൻ അപേക്ഷകളും പുനഃപരിശോധിക്കാൻ സംസ്ഥാന അഡ്മിനിസ്ട്രട്ട്ട്ട്ട്ട്ട്ട്ട്ട്ടീവ് കൌൺസിൽ ഡെപ്യൂട്ടി കമ്മീഷണർമാരോട് നിർദേശിച്ചിട്ടുണ്ട്

നീരവ് മോദി ഇപ്പോൾ ലണ്ടനിലെ ജയിലിലാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിലെ വായ്പാ തട്ടിപ്പ് കേസിലും കള്ളപ്പണം വെളിപ്പിക്കലിലുമായി രണ്ട് ബില്യൺ യു എസ് ഡോളറാണ് നീരവ് മോദിയിൽ നിന്ന് രാജ്യത്തിന് കിട്ടാനുള്ളത്

ബി ഐ കേസെടുത്തു അനധികൃത മാർഗ്ഗങ്ങളിലൂടെ ആനുകൂല്യങ്ങൾ നേടിയതിനെതിരെയാണ് നടപടി

ബി ഐ പിടിച്ചെടുത്തു

കൊല്ലപ്പെട്ടവരിൽ ദ പേർ സ്ത്രീകളാണ് ധംതാരി ജില്ലയിലെ മേഛാക് മേഖലയിലാണ് മാവോയിസ്റ്റുകളും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത് പ്രദേശത്ത് നിന്ന് ആയുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകൾ കൊലപാതകവും മോഷണവും ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ പ്രതികളാണ്